സമ്മേളനം വെട്ടിച്ചുരുക്കാൻ പാർലമെന്റ് കാര്യോപദേശക സമിതി യോഗത്തിൽ തീരുമാനം

കോവിഡ് വ്യാപനം രൂക്ഷ്മായ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ന് കേന്ദ്രം ഉന്നതതലി അവലോകന യോഗം ചേർന്നു സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ ലഭൃത ഉറപ്പാക്കാൻ നിർദ്ദേശം

റെഡ് അലേർട്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്

കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ യോഗത്തെ അഭിസംബോധന ചെയ്തു

സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പ് വരുത്താനും കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആശുപത്രി തലത്തിൽ അവലോകനം ചെയ്യാനും ശ്രീ

കോവിഡ് രോഗമുക്തി നിരക്കിൽ ഇന്ത്യ അമേരിക്കയെ മറികടന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ മഹാരാഷ്ട്ര ആന്ധ്രപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലെ കോവിഡ് വ്യാപനം ആശങ്ക ഉയർത്തുകയാണ്

വർദ്ധിച്ച വ്യാപനശേഷി ഉള്ള വൈറസുകളാണ് കേരളത്തിൽ കാണപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഏറ്റവുമധികം രോഗബാധിതർ ഉള്ള അമേരിക്കയിൽ മരണസംഖ്യ രണ്ട് ലക്ഷം കടന്നു ലോകത്ത് മൂന്ന് കോടി ഒൻപത് ലക്ഷത്തിലധികം പേർക്ക് ഇത് വരെ രോഗം ബാധിച്ചു

ഇന്നലെ ചേർന്ന പാർലമെന്റ് കാര്യോപദേശക സമിതി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനത്തിലെത്തിയത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാംഗങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം

ലോക്സഭാ സ്പീക്കർ ഓം ബിർലയുടെ നേതൃത്വത്തിൽ ചേർന്ന പാർലമെന്റ് കാര്യോപദേശക സമിതി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു

പി മാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതുരുട്ടി വെട്ടിച്ചുരുക്കാൻ കാരണമായെന്നാണ് റിപ്പോര്ട്ട് അതിനിടെ മൂന്ന് കാർഷിക ബില്ലുകൾ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചരൃത്തിൽ ബി

എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമെന്നും കർഷകസൌഹൃദമെന്നും വിശേഷിപ്പിച്ച ബില്ലിൽ ചില പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് അറിയിച്ചു സുപ്രധാനമായ നിരവധി ബില്ലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭകൾ പാസാക്കിയിരുന്നു പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനും ആരോഗ്യപ്രവർത്തകർക്ക് സംരക്ഷണം നൽകാനും വ്യവസ്ഥ ചെയ്യുന്ന പകർച്ചവ്യാധി ഭേദഗതി ബിൽ രാജ്യസഭ ഇന്നലെ പാസാക്കി

കഴിഞ്ഞ മാർച്ച് മുതൽ ആറ് മാസക്കാലയളവിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയ കാരണത്താൽ പാപ്പരത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇൌ ബിൽ നിയമമാകുന്നതോടെ സാധിക്കില്ല

ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ ബിൽ വഴിയൊരുക്കും

വിളകൾക്ക് നല്ല വില ലഭിക്കാനും രാജ്യത്ത് എവിടെയും ഉത്പന്നങ്ങൾ വിൽക്കാനും കാർഷിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കാനും ബില്ലുകൾ സഹായിക്കുമെന്ന് ശ്രീ പളനിസ്വാമി അഭിപ്രായപ്പെട്ടു

സംഘടനയുടെ ആസ്ഥാനമായ ന്യുയോർക്കിൽ നാളെയാണ് സമ്മേളനം ആരംഭിക്കുന്നത്

ബിഹാറിന്റെ സമീപ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും ചരക്കു ഗതാഗതവും മെച്ചപ്പെടുത്താനും ഇത് സഹായ്ക്കിക്കും

മലിനീകരണം വർദ്ധിക്കാറുള്ള മഞ്ഞുകാലവും വിളവെടുപ്പുകാലവും അടുക്കുന്നതിന് മുൻപ് വേണ്ട മുൻകരുതൽ നടപടികൾ എടുക്കാനാണ് യോഗം

ഐ ആറും ചേർന്ന് വികസിപ്പിച്ച ക്രിസ്പർ ടെസ്റ്റിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം

തദ്ദേശീയമായി വികസിപ്പിച്ച രീതിയിൽ പ്രത്യേകതരം സി

എസ്

അതിർത്തിയിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ യോഗത്തിൽ ധാരണയായി

കശ്മീരിലെ പ്പുൽവാമ് ജില്ലയിലെ അവന്തിപ്പോര ഖ്രൂ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പൂർ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഹിസ്ബ് ഉൾ മുജാഹിദീൻ്ട് അൽ ബദ്ർ എന്നീ ഭീകരസംഘടനകളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇവരിൽ നിന്നും കണ്ടെടുത്തു

ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

ഒന്നാം സെമി ഫൈനലിൽ സിമോണ ഹാലിപ് സ്പെയിനിന്റെ ഗാർബിനെ മുഗുരസയെയും രണ്ടാം സെമിയിൽ കരോലിന പ്ലിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കിന്റെ മാർക്കെറ്റ വോൻഡ്രുസ്ലോവയെ നേരിടും

ഇതു സംബന്ധിച്ച ബിജെപി പ്രചാരണം കോൺഗ്രസും ലീഗും ഏറ്റെടുത്തത് എന്തിനാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു

കേന്ദ്ര സംസ്ഥാന സേനകളോട് സജ്ജരാകാൻ സർക്കാർ നിർദ്ദേശം നല്കി

ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളതീരത്തു നിന്നും കടലിൽ പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്

പെരിയാറിന്റെ കരകളിലും അണക്കെട്ടുകളുടെ തീരമേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു